കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടരുന്നു

പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട്

കക്ഷികളുമായി മുഖ്യ ത്രെഞ്ഞെടുപ്പ് ഓഫീസർ നാളെ ചർച്ച നടത്തുക അടുത്ത മാസ്റ്റ എട്ട് വരെ വോട്ടർ പട്ടികയിൽ ന് പേര് ചേർക്കാൻ അവസരം

ആസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുമായി കളക്ടർമാരുടെ ചർച്ച തുടങ്ങി ഈ വർഷത്തെ എസ്

നാളെ തുടക്കമാകും

കൊടിയേറി

കോൺഗ്രസ് അദ്ധ്യക്ഷൻ രാഹുൽഗാന്ധിയുടെ കേരള സന്ദർശന വേളയിൽ സ്ഥാനാർത്ഥികളെപ്പറ്റി ചർച്ചയുണ്ടാകുമെന്നാണ് സൂചന

മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും മൽസരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയതോടെയാണ് അന്തിമ സ്ഥാനാർത്ഥിപ്പട്ടിക വൈകുന്നത്

ജെ പിയുടെ സ്ഥാനാർത്ഥിപ്പട്ടിക അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച എൽ

ഡി എഫ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് വൈകിട്ട് ഇ

ജയരാജൻ ഉദ്ഘാടനം ചെയ്യും

രാവിലെ തിരുവന്തപുരം വിമാനത്താവളത്തിൽ എത്തിയ അദ്ദേഹത്തെ ബി ജെ പി നേതാക്കളും പ്രവർത്തകരും സ്വീകരിച്ചു

ജോസഫിന് കോട്ടയം ലോക്സഭാ സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി പി

തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം സി

എമ്മിനെ സഹായിക്കാനാണെന്ന് പി

ജോർജ്ജ് ആരോപിച്ചു

ഇത് സംബന്ധിച്ച ബുക്ക്ലെറ്റ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നൽകിയിട്ടുണ്ട് പെരുമിറ്റുച്ചട്ട് ലംഘനം കണ്ടാൽ പൊതുജനങ്ങൾക്ക് സി പ്പിജിൽ എന്ന മൊബൈൽ ആപ്പ് മുഖേന കമ്മിഷനെ വിവരം അറിയിക്കാം രണ്ട് മിനിട്ട് വരെ ദൈർഘ്യമുള്ള വീഡിയോയായും അപ്ലോഡ് ചെയ്യാവുന്നതാണെന്നും ശ്രീ മീണ അറിയിച്ചു

ഇതിൽ നടപടി പുരോഗമിക്കുന്നതായും ശ്രീ

നാമനിർദേശ പത്രിക പിൻവലിക്കുന്ന അടുത്ത മാസം എട്ട് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം

സ്ഥാപിച്ചിട്ടുള്ള ഫ്ളക്സ് ബോർഡുകൾ ഉടനടി നീക്കം ചെയ്യണമെന്ന് ജില്ലയിലെ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർക്കാണ് നിർദേശം നൽകിയത്

യോഗത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികളിൽ അടിയന്തിര പരിഹാരം കാണുന്നതിന് സി വിജിൽ മൊബൈൽ ആപ്തിക്കേഷൻ സോഫ്റ്റ് വെയറിൽ പരിശീലനം നൽകും

പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് കളക്ടർ ആവശ്യപ്പെട്ടു

പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ കളക്ടറേറ്റുൾപ്പടെയുള്ള സ്ഥാപനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും സ്ഥാപിച്ചിരുന്ന പോസ്റ്ററുകളും ബാനറുകളും നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു മാതൃകാ പെരുമാറ്റച്ചട്ടം എല്ലാവരും പാലിക്കണമെന്നും ഫ്ളെയിംങ്ങ് സ്കാഡ് മുഖേനയുള്ള പരിശോധന കർശനമാക്കുമെന്നും നോഡൽ ഓഫീസറായ അസിസ്റ്റൻറ് കളക്ടർ അറിയിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ബിജി വർഗ്ഗീസ്

എസ് എൽ സി പരീക്ഷ നാളെ തുടങ്ങും

തിരുവനന്തപുരം മൃഗശാലയിൽ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ചൂടിൽ നിന്ന് ആശ്വാസം പകരാൻ അധികൃതർ വിപുലമായ സജ്ജീകരണമൊരുക്കി

പക്ഷികളുടെ കൂടുകളിൽ ആവശ്യത്തിന് വെള്ളമുണ്ടെന്ന് ഉറപ്പാക്കുന്നുണ്ട്

കാട്ടുപോത്ത് മ്ലാവ് പുള്ളിമാൻ ഒട്ടകപക്ഷി എന്നിവയ്ക്ക് തണലൊരുക്കാൻ ഓലപ്പിന്റൽ ഒരുക്കുകയാണ്

ജലാംശം കൂട്ടൂതല്ഡ അടങ്ങിയ പഴങ്ങളാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചൂട് തീർത്തും അസഹനീയമായ ഹിമാലയൻ കരടിക്ക് പഴവർഗ്ഗങ്ങൾ മുറിച്ച് ഐസാക്കിയാണ് നൽകൂന്നത്

പനമരം കാപ്പുംചാൽ കളിയാർതോട്ടത്തിൽ രാഘവനാണ് മരിച്ചത് ഇന്നലെ രാത്രിയാണ് ആനയിറങ്ങിയത്

സമീപത്തെ സ്കൂളുകളിൽ നിന്നു കുട്ടികളെ പുറത്ത് വിടരുതെന്ന് അധികൃതർ നിർദേശം നൽകിയിട്ടുണ്ട് ആനയെ കാട്ടിലേക്ക് തിരികെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആനയുടെ ആക്രമണത്തിൽ ആറ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു വയനാട് പനമരം കൊയിലേരി ഭാഗത്ത് ജനവാസ കേന്ദ്രത്തിലിറങ്ങി നാശം വിതച്ചു കൊണ്ടിരിക്കുന്ന കാട്ടുകൊമ്പനെ ഉടൻതന്നെ മയക്കുവെടിവെച്ച് റേഡിയോകോളർ ചെയ്ത് ഉൾവനത്തിലേയ്ക്ക് കയറ്റി വിടാൻ വനം മന്ത്രി കെ രാജു ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഉത്തരവ് മരിച്ചയാളിന്റെ ആശ്രിതർക്ക് അടിയന്തിരമായി പത്ത് നൽകി ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും ഉത്തരവായി

ജെറോം നഗറിലെ ജി മാക്സ് സിനിമാസിൽ വൈകിട്ട് മൂന്നിന് രാജ്യസഭാംഗം ബിനോയ് വിശ്വം ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്യും

തെരഞ്ഞെടുപ്പ് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണെന്നും വിവാദങ്ങൾ അനാവശ്യമാണെന്നും ഒവെയ്സി ട്വീറ്റ് ചെയ്തു